പ്രതിപക്ഷ കക്ഷികൾ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് വാക്സിൻ പ്രിതരണത്തിനായി പരിശീലനം അടക്കമുള്ള നടപ്പടികൾ ഊർജിതപ്പെടുത്തി കേന്ദ്ര സർക്കാർ

ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമപുതുക്കി ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു

ഓസ്ട്രേലിയക്കെതിരെ നാളെ ആരംഭിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ന്രേന്ദ്ര മോഹൻ വോയ്സ് രാജ്യത്തെ കർഷകരുടെ കൃഷിക്കായുള്ള മുതൽമുടക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സോയിൽ ഹെൽത്ത് കാർഡ് യൂറിയയുടെ നീം കോട്ടിങ് സോളാർ പമ്പുകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്

കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക നിയമങ്ങൾക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതായും ചിലർ ഇതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ഗ്രാമീണ കർഷകരുടെ ജീവിതം സുഗമമാക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കർഷകർ പധാനമന്ത്രിയുമായി പങ്കുവച്ചു കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ ചടങ്ങിൽ പങ്കെടുത്തു പിഎം കിസാൻ നിധിയിലൂടെ ലഭ്യമാക്കിയ ധനസഹായം കർഷകർക്ക് ഏറെ സഹായകരമാകുന്നതാണെന്ന് കൃഷിമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് സംഘടിപ്പിച്ച കിസാൻ സമ്മേളനങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമല സീതാരാമൻ തുടങ്ങി വിവിധ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നശേഷം കൃഷിക്കുള്ള ബജറ്റ് വിഹിതം ഉയർത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർഷകരുടെ താൽപ്പരൃങ്ങൾ സംരക്ഷിക്കുന്നതല്ലാത്ത ഒന്നുംതന്നെ മോദി സർക്കാർ ചെയ്യില്ലെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷവർദ്ധൻ ന്യൂഡൽഹിയിലെ കമലാനഗറിലും ധനമന്ത്രി നിർമല സീതാരാമൻ രഞ്ജിത്ത് നഗറിലും നഗരകാര്യ മന്ത്രി ഹർദീപ് സിംഗ് പുരി ജനക്പുരിയിലും കർഷക സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു

വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ പരിശീലകർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ നടന്നു

വാക ്സിൻ വിതരണം ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഐടി പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗം മരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനത്തിന്റെ തയ്യാറെടുപ്പ് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടൽ എന്നിവയിലാണ് പരിശീലനം

കോട്ടയം കോഴിക്കോട് എർണാകുളം പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

വാക്സിൻ വികസിപ്പിച്ച ഭാരത് ബയോടെക്കിന്റെ മാനേജിങ് ഡ്യിറക്ട്ർ ഡോക്ടർ കൃഷ്ണ ജോയിന്റ് മാനേജിങ് ഡയ്ക്ക്ടർ ശ്രീമതി സുചിത്ര എല്ല എല്ല എന്നിവരുമായി ഉപരാഷ്ട്രപതി ഹൈദരാബാദിൽ സംഭാഷണം നടത്തി വാക്സിൻ ഇന്ത്യയിലും ലോകമൊട്ടാകെയും ലഭ്യമാക്കുന്നത് ഉൾപ്പെട്ടിയുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു ഐസിഎംആറും ഭാരത് ബയോടെക്കും സംയോജിച്ചുള്ള പ്രവർത്തനങ്ങളെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു

സദ്ഭരണ ദിവസമായിട്ടാണ് ഈ ദിനം രാജ്യത്ത് ആചരിക്കപ്പെടുന്നത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അടൽ ബിഹാരി വാജ്പേയിക്ക് ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ന്യൂഡൽഹിയിലെ അടൽ സ്മാരകത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമല സീതാരാമൻ പ്രകാശ് ജാവദേക്കർ പിയൂഷ് ഗോയൽ തുടങ്ങിയവരും മുൻപ്രധാനമന്ത്രിക്ക് പുഷ്പാർച്ചന നടത്തി

കൊവിഡ് മഹുമാരിയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെ ആയിരുന്നു ഇക്കുറി ആഘോഷപരിപാടികൾ

യേശു പിറന്ന ബെത് ലഹേമിലും കത്തോലിക്കാ ്സ്ട്രയുടെ ആസ്ഥാനമായ വത്തിക്കാനിലുമെല്ലാം ആഘോഷപരിപാടികൾ ചുരുങ്ങിയ നിലയിലായിരുന്നു

മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നാളെ മുതൽ ആരംഭിക്കുന്ന ടെസ്റ്റിൽ വിരാട് കോലിക്ക് പകരം ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അജിങ്കൃ രഹാനെ ആയിരിക്കും പുതുമുഖങ്ങളായ ശുഭൻ ഗില്ലും മുഹമ്മദ് സിറാജും ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയും ഋഷഭ് പന്തും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചുവന്നിട്ടുണ്ട് നാലു മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു